ഞായറാഴ്ച ശുചീകരണ ദിനമായി ആചരിക്കും

ത ഗുജറാത്തിൽ കുടുങ്ങിയ മലയാളികളുമായി ആദ്യ ട്രെയിൻ സംസ്ഥാനത്തെത്തി

കേരള തീരത്ത് ഇന്ന് അർധ രാത്രി മുതൽ മത്സ്യ ബന്ധനത്തിന് പൂർണ്ണ നിരോധനം വാർത്തകൾ വിശദമായി വിദേശത്ത് നിന്നെത്തുന്ന പാവപ്പെട്ടവർ ക്വാറന്റൈൻ ചെലവ് വഹിക്കേണ്ടെന്ന് വിജയൻ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു വിദേശത്തു നിന്നെത്തുന്നവർ ക്വാറന്റൈൻ ചെലവ് വഹിക്കണമെന്ന ഗവൺമെന്റ് നിർദ്ദേശം ചില തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയെന്നും ക്വാറന്റൈൻ ചെലവ് താങ്ങാൻ കഴിയുന്നവരിൽ നിന്ന് മാത്രം ഈടാക്കാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദാംശം അടങ്ങിയ ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡിന് പുറമെ സംസ്ഥാനം നേരിടാൻ പോകുന്ന മഴക്കാല രോഗങ്ങളും തടയുന്നതിന് ശുചീകരണം പ്രധാനമാണ്

പൊതുസ്ഥലങ്ങൾ തദ്ദേശസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുമ ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ആരാധനാലയങ്ങൾ തുറക്കണമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ടെന്നും സ്ഥിതി മെച്ചപ്പെട്ട ശേഷം പരിഗണിക്കാമെന്നാണ് ഗവൺമെന്റ് നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദേദ പ്രവാസികളിൽ നിന്നും ക്വാറന്റൈൻ ഫീസ് ഇൌടാക്കാനുള്ള ഗവൺമെന്റ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ സംസ്ഥാനത്തെ എല്ലാ കളക്ടേറ്റിന് മുന്നിലും പ്രതിഷേധ ധർണ്ണ നടത്തുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു രും സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരം പിന്നിട്ടു

പാലക്കാട് ജില്ലയിൽ എട്ടും ആലപ്പുഴ ജില്ലയിൽ ഏഴും കൊല്ലം ജില്ലയിൽ നാലും പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പത്തനംതിട്ട വയനാട് ജില്ലകളിൽ മൂന്ന് പേർക്ക് വീതവും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ രണ്ട് പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു

രുമ സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച കാസർകോട് ജില്ലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

രെ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച രണ്ടു പേരുടേയും ആരോഗ്യനില തൃപ്തികരമാണ്

പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ തത്തമംഗലം പൊൽപ്പുള്ളി നെല്ലായ പട്ടിത്തറ ഷൊർണൂർ മുൻസിപ്പാലിറ്റി പരുതൂർ കുഴൽമന്ദം വിളയൂർ പെരുങ്ങോട്ടുകുറിശി തരൂർ തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ നാവായിക്കുളം നെല്ലനാട് എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ

ഇവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയ പത്തു പേരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളജുകളിലേക്ക് മാറ്റി രമേ വന്ദേഭാരത് മിഷൻ പ്രകാരം താജിക്കിസ്ഥാനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം കണ്ണൂർ രാജ്യാന്തര വിമാനതാവളത്തിലെത്തി

കോവിഡ് രോഗ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഒരാളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ബെവ്ക്യൂ ആപ്പിൽ ബുക്ക് ചെയ്ത് ഇ ടോക്കൺ ലഭിച്ചവർക്ക് രാവിലെ ഒമ്പത് മുതൽ മദ്യം നൽകും

ബാർഹോട്ടലുകളിൽ നിന്നും ചില്ലറവിൽപനശാലകളിൽനിന്നും മദ്യം പാഴ്സൽ ആയി മാത്രമേ ലഭിക്കൂ ബിയർ വൈൻ പാർലറുകളിൽ നിന്ന് ബിയറും വൈനും മാത്രമായിരിക്കും ലഭിക്കുക

ഞായറാഴ്ചയോട് കൂടി തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിനും കേരളത്തിനും ഇടയിലായി കേരളത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് നാളെയോടെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ ഇടയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അർധരാത്രി മുതൽ കേരള തീരത്ത് പൂർണമായും മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി ദീർഘദൂര മൽസ്യബന്ധനത്തിന് പോയവർ ഇന്ന് രാത്രിയോടെ തന്നെ മടങ്ങിയെത്തുകയോ അടുത്തുള്ള സുരക്ഷിതമായ തീരത്തണയുകയോ ചെയ്യണം ന്യൂനമർദത്തിന്റെ സ്വാധീനം മൂലം ശക്തമായ കാറ്റ് മഴ രൂക്ഷമായ കടലാക്രമണം എന്നിവക്ക് സാധ്യതയുണ്ട് മത്സ്യബന്ധനോപകരണങ്ങൾ കടലാക്രമണത്തിൽ നശിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ശക്തമായ മഴ മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് രുഭ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ നൽകിയ ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതിയുണ്ടാവരുതെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു ചിലയിടങ്ങളിൽ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചാണ് ആളുകൾ പുറത്തിറങ്ങുന്നതെന്നും ബസുകളിലും ഓട്ടോറിക്ഷകളിലും സാമൂഹ്യ അകലം പാലിക്കാതെ ആളുകളെ കയറ്റുന്ന സ്ഥിതിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു